ആരംഭിക്കും

ചെയ്ത് കേന്ദ്രമന്ത്രി അമിത്ഷാ ബീഹാറിലും വെള്ളപ്പൊക്ക ഭീഷണി

മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു

തൃച്ചിയിൽ നിന്നും ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

ഇതിനായി ആരോഗ്യപ്രവർത്തകർക്കൊപ്പം പോലീസും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കൂടുതൽ സജീവമായി രംഗത്തിറങ്ങും

മഹാരാഷ്ട്രയിൽ ബി ജെ പി യുടെ വിർചൽ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന രാജീവ് ഗാന്ധി ഫൌണ്ടേഷൻ ചൈനയിൽ നിന്നും പണ്ടു കൈപ്പറ്റിയതായി മന്ത്രി ആരോപിച്ചു

ചൈസ്ട്രീസ് ് എംബസിയുടെ സഹായം സ്വീകരിക്കേണ്ട ആവശ്യകൃ ്യക്കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു

ബി ഐ യ്ക്ക് കൈമാറാൻ തമിഴ്നാട് ഗവൺമെന്റ് തീരുമാനിച്ചു ഇതുസംബന്ധിച്ച് സർക്കാർ തീരുമാനം മദ്രാസ് ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി കെ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

റോഡ് ഗതാഗതം പല സ്ഥലത്തും തടസ്സപ്പെട്ടു

സ്ഥിതി കേന്ദ്രമന്ത്രി അമിത്ഷാ വിലയിരുത്തി മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ മന്ത്രി ഹിമന്ദബിശ്വ ശർമ്മ എന്നിവരുമായി ശ്രീ

അസ്സമിന് സാധ്യൂമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി

കഴിഞ്ഞ ഒരാഴ്ചയായി ബീഹാറിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് മഹാനന്ദ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് വരും ദിവസങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴ പ്രവചിച്ചിട്ടുള്ളതിനാൽ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ജാഗ്രത പുലർത്തുകയാണ്

വിശദാംശങ്ങളുമായി ലക്ഷ്മി മോഹൻ

കെ കാനഡ ഗൾഫ് എന്നീ രാജ്യങ്ങളിൽ നിന്നുളള ഇന്ത്യാക്കാരെയാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ നാട്ടിലെത്തിക്കുക

മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ ഇതിനകഠ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നാലാം ഘട്ടത്തിൽ യു എ ഇ യിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് നേരിട്ട് ടിക്കറ്റ് ബുക്ക്ചെയ്യാനും സൌകര്യം നൽകിയിട്ടുണ്ട് എയർ ഇന്ത്യ വെബ്സൈറ്റിൽ ടിക്കറ്റ് ലഭൃമാണ്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

മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രവാസികളുമായി ഒൻപത് വിമാന്ങ്ങളാ്ണ് ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രിപ്പാ്സികളുമായി എട്ട് വിമാനങ്ങളാണ് ഇന്ന് എത്തിച്ചേരുന്നത്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

ഇത് മൂന്നാം തവണയാണ് സമയം ദീർഘിപ്പിക്കുന്നത്

നികുതി വ്യത്യാസമനുസരിച്ച് സംസ്ഥാനങ്ങളിലെ വിലയിലും വൃത്യാസമുണ്ടാകും

അഭിപ്രായ സർവ്വേയിൽ തുടക്കം മുതൽ ഗുഡ്നി ജൊഹാൻസണ് വലിയ മുൻതൂക്കം നൽകിയിരുന്നു

രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയോടെ മുന്നോട്ട് പോകാനാകുമെന്ന ആത്മവിശ്വാസം വോട്ടെടുപ്പ് വേളയിൽ ജൊഹാൻസൺ പങ്കുവച്ചിരുന്നു

കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രാജ്യത്ത് കോവിഡ് കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത പശ്ചാത്തലത്തിലാണ് കർഫ്യൂ പിൻവലിച്ചത്